പോസ്റ്റൽ അക്കൌണ്ടുകൾ ആധാറുമായി ബന്ധിപ്പി ക്കുമെന്ന് കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് വൃക്കരോഗ ചികിത്സാർംഗത്തെ ആധുനിക സംവി ധാനങ്ങൾ എല്ലാ രോഗികൾക്കും ലഭ്യമാകുന്ന സാഹ ചര്യമുണ്ടാവണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാലാ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നാളെ റഷ്യയിൽ പ്രലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ അമിത് പംഗാലിന് വെള്ളി

ഒരു വിദേശ ഭരണാ ധികാരിക്ക് അമേരിക്കൻ ഗവൺമെന്റ് നൽകുന്ന ഏറ്റവും വലിയ ബഹുമതിയാണ് ഇത്

ഇതാദ്യമായാണ് അമേരിക്കൻ പ്രസിഡന്റ് മറ്റൊരു രാജ്യത്തെ പ്രധാനമന്ത്രിയുടെ ചട ങ്ങിൽ പങ്കെടുക്കുന്നത് നാളെ ന്യൂയോർക്കിൽ കാലാവസ്ഥാ ഉച്ചകോടിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും ആരോഗ്യരം ഗത്ത് ആയുഷ്മാൻ ഭാരത് പദ്ധതി ഉൾപ്പെടെ പരിപാടി കളിലൂടെ രാജ്യം കൈവരിച്ച നേട്ടങ്ങൾ യു എൻ പരി പാടിയിൽ നരേന്ദ്രമോദി വിശദീകരിക്കും

സച്ഛ്ഭാരത് അഭിയാന് തുടക്കമിട്ട നരേന്ദ്രമോദിക്ക് ബിൽ ആന്റ് മിലിൻഡ ഗേറ്റ്സ് ഫൌണ്ടേ ഷൻ പ്രഖ്യാപിച്ച ആഗോള പുരസ്കാരം സമ്മാനിക്കും നിരവധി ലോകനേതാക്കളുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ചയും നടത്തും കൂടുതൽ സുതാര്യതക്കായി രാജ്യത്തെ പോസ്റ്റൽ അക്കൌണ്ടുകൾ ആധാറുമായി ബന്ധിപ്പിക്കുമെന്ന് കേന്ദ്ര മന്ത്രി രവിശങ്കർ പ്രസാദ് പറഞ്ഞു പാറ്റ്നയിൽ രാജ്യത്തെ പത്താമത്തെ ആധാർ സേവാ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യു കയായിരുന്നു മന്ത്രി രാജ്യത്തെ രണ്ടാമത്തെ വനിതാ പോസ്റ്റ് ഓഫീസിന്റെ ഉദ്ഘാടനവും അദ്ദേഹ്ം പാറ്റ്നയിൽ നിർവ്വഹിച്ചു വനിതാ ശാക്തീകരണം ലക്ഷ്യമിട്ട് വനിതാ പോസ്റ്റ് ഓഫീസുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രി പറഞ്ഞു വൃക്കരോഗ ചികിത്സാരംഗത്തെ താക്കോൽദ്വാര ശസ്ത്രക്രിയാരീതിയായ റിട്രോപെരിറ്റോണോസ്കോപ്പി പോലെ ആധുനിക സംവിധാനങ്ങൾ എല്ലാ രോഗി കൾക്കും ലഭ്യമാകുന്ന സാഹചര്യമുണ്ടാകണമെന്ന് മുഖ്യ മന്ത്രി പിണറായി വിജയൻ പറഞ്ഞു

ഏറ്റവും സുരക്ഷിതവും ആന്തരികാവയവങ്ങൾക്ക് ക്ഷതമേൽപ്പിക്കാത്തതും ശസ്ത്രക്രിയമൂലമുള്ള ശാരീരി കാസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാക്കാത്തതുമായ സംവിധാനമാണി ത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വൃക്ക രോഗ ചികിത്സാ വിഭാഗത്തിന്റെ സൂവർണ്ണ ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയാ യിരുന്നു മുഖ്യമന്ത്രി പുതിയ വിദ്യാഭ്യാസ രീതികൾ ഉൾക്കൊണ്ടും പൊതു ജന പങ്കാളിത്തം ഉറപ്പാക്കിയും വിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കാൻ തദ്ദേശഭരണവകുപ്പ് ഒരുക്കമാണെന്ന് മന്ത്രി എ

കുന്നുകുളത്ത് നവം ബർ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിന്റെ സംഘാടക സമിതി രൂപീകരണയോഗം കുന്നംകുളം ഗവൺമെന്റ് ഹയർ സെക്കണ്ടറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി സംസ്ഥാനത്ത് വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായ അത്ഭുതകരമായ മാറ്റത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപ നങ്ങൾക്ക് മുഖ്യ പങ്കാണുള്ളതെന്ന് മന്ത്രി പറഞ്ഞു പാലാ നിയമസഭാ ഉപതിരഞ്ഞെടുപ്പ് നാളെ

കെ സുധീർ ബാബു അറിയിച്ചു നിശബ്ദ പ്രചാരണ ദിവസമായ ഇന്ന് പരമാവധി വോട്ടർമാരെ നേരിൽ കാണാൻ മൂന്നു ്മുന്നണി സ്ഥാനാർത്ഥികളും ശ്രമിക്കും

എഫ് സ്ഥാനാർത്ഥി ജോസ് ടോം എൽ

എഫ് സ്ഥാനാർത്ഥി മാണി

കാപ്പൻ എൻ

എ സ്ഥാനാർത്ഥി എൻ ഹരി എന്നിവരടക്കം പതിമൂന്ന് സ്ഥാനാർത്ഥികളാണ് പാലായിൽ മൽസര രംഗത്തുള്ളത് ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനത്തെ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിൽ നാളെ വരെ വോട്ടർ പട്ടി കയിൽ പേര് ചേർക്കാം ഇവരെക്കൂട്ടി ഉൾപ്പെടുത്തി യാകും സപ്ലിമെന്ററി വോട്ടർപട്ടിക പ്രസിദ്ധീകരിക്കുക യെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ തിരുവനന്തപുരത്ത് അറിയിച്ചു ഉപതിരഞ്ഞെടുപ്പുകളിലെ സ്ഥാനാർത്ഥി നിർണ്ണയം ചർച്ച ചെയ്യാൻ സി

എം സംസ്ഥാന സെക്രട്ടേറി യറ്റും സമിതിയും മറ്റന്നാൾ തിരുവനന്തപുരത്ത് ചേരു മെന്ന് സി

തിരഞ്ഞെടുപ്പിന് പാർട്ടി പൂർണ്ണസജ്ജമാണെന്നും തിരഞ്ഞെടുപ്പിനിടെ പുകമറ സൃഷ്ടിക്കാനാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നി ത്തലയുടെ ശ്രമമെന്നും കോടിയേരി കോട്ടയത്ത് പറ ഞ്ഞു

വി പാറ്റ് വോട്ടിംഗ് യന്ത്രങ്ങൾ മധുരയിൽനിന്ന് ഇന്നലെ രാത്രി കൊച്ചിയിൽ എത്തിച്ചു

ജില്ലയിൽ ഇന്നലെ മുതൽ പെരുമാറ്റച്ചട്ടം പ്രാബല്യത്തിൽ വന്നു ലൈഫ് പദ്ധതിയുടെ മൂന്നാം ഘട്ടത്തിൽ എല്ലാ ജില്ല കളിലും ഫ്ളാറ്റ് മാതൃകയിൽ ഭവന സമുച്ചയം നിർമ്മി ക്കാനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നതെന്ന് മന്ത്രി ടി

ഇത്തരം വസ്തുതകളെ മറച്ചുവെച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രവണത സമൂഹത്തിൽ പ്രചരിക്കുന്നതായും മന്ത്രി പറഞ്ഞു കോഴിക്കോട് എടച്ചേരിയിൽ ലൈഫ് ഭവന പദ്ധതി പ്രകാരം നിർമ്മിച്ച വീടുകളുടെ താക്കോൽദാനം നിർവ്വ ഹിക്കുകയായിരുന്നു മന്ത്രി

എഫ് ഗവൺമെന്റ് ഉഴലുകയാ ണെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കാസർകോട്ട് പറഞ്ഞു പാവങ്ങളുടെ പേര് പറഞ്ഞ് അധി കാരത്തിൽ വന്ന ഗവൺമെന്റ് ജനദ്രോഹൃഭരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും കഴിഞ്ഞ ഓണത്തിന് റേഷൻ കടകളിലും മാവേലി സ്റ്റോറുകളിലും ഓണക്കി റ്റുകൾപോലും വിതരണം ചെയ്തിട്ടില്ലെന്നും പ്രളയ സെസ് ഏർപ്പെടുത്തി ജനങ്ങളെ ദ്രോഹിക്കുന്ന നിലപാ ടാണ് ഗവൺമെന്റിന്റേതെന്നും ചെന്നിത്തല കുറ്റപ്പെടു ത്തി ഉദുമ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സർവ്വകലാശാല ചട്ടങ്ങൾ മറികടന്ന് ഇടപെടൽ നട ത്തിയെന്ന് ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ മന്ത്രി ഡോ

ടി ജലീലിനെതിരെ മുഖ്യമന്ത്രി ഇടപെട്ട് അന്വേ ഷണം നടത്തണമെന്ന് മുസ്ലിംലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ

സ്ഥാനം രാജി വെച്ച് അന്വേഷണത്തെ നേരിടാൻ മന്ത്രി തയ്യാറാവണ മെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു

എ മജീദ് പറഞ്ഞു

ലോക ചാമ്പൃൻഷിപ്പിൽ വെള്ളി നേടുന്ന ആദ്യ ഇന്ത്യൻ പുരുഷ താരമെന്ന് നേട്ടം ഇതോടെ അമിത് പംഗാൽ സ്വന്തമാക്കി

ബുധനാഴ്ച മൊഹാലിയിൽ രണ്ടാം മത്സരത്തിൽ ഇന്ത്യ ഏഴ് വിക്കറ്റിന് ജയിച്ചിരുന്നു

അടുത്ത മാസം രണ്ടിന് ടെസ്റ്റ് മത്സരങ്ങൾ ആരംഭിക്കും

എൽ എ വിജയികൾക്ക് ട്രോഫികൾ വിത രണം ചെയ്തു

ഡി സ്കൂൾ മൂന്നാം സ്ഥാനവും നേടി സന്തോഷ് ട്രോഫി ഫുട് ബോൾ പരിശീലന ക്യാമ്പിന്റെ ഭാഗമായി കോഴിക്കോട് നടന്ന കേരളം ഗോകുലം എഫ് സി സൌഹാർദ്ദ മത്സരത്തിൽ കേരളം ഏകപക്ഷീയമായ ഒരു ഗോളിന് ജയിച്ചു നാസർ ആണ് കേരളത്തിനുവേണ്ടി ഗോൾ നേടിയത് വാഴയിനങ്ങളുടെയും തേനിന്റെയും സംസ്കരണ ത്തിനും വിപണനത്തിനുമായി കേരള അഗ്രോ ഇൻഡ സ്ട്രീസ് കോർപ്പറേഷന്റെ ആഭിമുഖ്യത്തിൽ കണ്ണാറ മോഡൽ ഹോർട്ടികൾച്ചറൽ ഫാമിൽ സ്ഥാപിക്കുന്ന ബനാന ആന്റ് ഹണി പാർക്ക് ഇന്ന് വൈകിട്ട് മൂന്നിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും

എസ് സുനിൽകുമാർ തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വയനാട് വൈത്തിരി പഞ്ചായത്തിന്റെ വിവിധ പ്രദേ ശങ്ങളിലെ വന്യമൃഗശലൃം തടിയാൻ നടപടി ആവശൃ പ്പെട്ട് ഇന്ന് ചുണ്ടേൽ ടൌണിൽ പന്യമൃഗ പ്രതിരോധ സമി തിയുടെ നേതൃത്വത്തിൽ മനുഷ്യ പ്രതിരോധ വേലി തീർക്കും

ചുണ്ടേൽ ചേലോട് കുന്നത്തുവയൽ ചാരിറ്റി തുടങ്ങിയ പ്രദേശ ങ്ങളിൽ നിലവിൽ അതിരൂക്ഷമായ വനൃമൃഗശലൃമാണ് നിലനിൽക്കുന്നത് പ് സേവഭാരതിയുടെ സംസ്ഥാന സമ്മേളനം ഇന്ന് കൊച്ചിയിൽ നടക്കും കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും

എം ആർ ഹാളിൽ ഇന്ന് നടക്കും പരിപാടികൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശാന്തകുമാരി ഉദ്ഘാടനം ചെയ്യും മലബാർ ബധിര അസോസിയേഷന്റെ വാർഷികവും ലോക ബധിര ദിനാചരണവും ബധിര കുടുംബ സംഗ മവും നാളെ കോഴിക്കോട് ടൌൺഹാളിൽ നിടക്കും പരി പാടിയുടെ ഭാഗമായി ഇരുനൂറോളം ബൂധിർർ അഭിനയിച്ച മൌനാക്ഷരങ്ങൾ എന്ന സിനിമയുടെ ട്രെയിലർ പാട്ടു കൾ എന്നിവയുടെ ലോഞ്ചിംഗ് വൈകിട്ട് മന്ത്രി ടി പി രാമകൃഷ്ണൻ നിർവ്വഹിക്കും

ചട ങ്ങിൽ വൃവസായ വാണിജ്യ ആരോഗ്യ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഏഴ് പേർക്ക് ചേംബർ ബിസി നസ്സ് അവാർഡുകൾ സമ്മാനിക്കും